നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ

അമേരിക്കൻ പ്രസാഡന്റ് ഡൊണ്ട്രിൾഫ് ട്രംപും ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആബേയുമായി അദ്ദേഹം ത്രികക്ഷി ചർച്ചയും നടത്തി

സമാധാനം സ്ഥിരത അടിസ്ഥാന സൌകരൃ വികസനം ഇന്തോ പസഫിക് മേഖലയിലെ പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ സംബന്ധിച്ചാണ് യോഗം ചർച്ച ചെയ്തതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ദീപു

ഇന്ത്യയ്ക്ക് ഒരു ബില്ല്യൺ ഉപഭോക്താക്കൾ ഉണ്ടെന്നും ഇരു രാജ്യങ്ങളും ആശയവിനിമയ ശൃംഖല സംയോജിപ്പിക്കണമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു റഷ്യ ഇന്ത്യ ചൈന സംഭാഷണങ്ങൾക്കുള്ള ചട്ടക്കൂട് തയ്യാറാകുന്നതിനുള്ള അനൌപചാരിക യോഗവും പ്രധാനമന്ത്രിയുടെ അദ്ധ്യക്ഷതയിൽ നടന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ്പിങ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ആഗോള പ്രശ്നങ്ങൾ അതീവ ഗൌരവത്തോടെ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

സൈബർ സുർക്ഷൻ ഇ മൊബിലിറ്റി കൃത്രിമ ബുദ്ധി തുടങ്ങിയ വിവിധ മേഖ്ലികളിലുള്ള സഹകരമവും ഇന്ത്യ ജർമ്മൻ ബന്ധം കൂടുതൽ ശ്ക്തമാക്കാനുള്ള വഴികളും ഇരുവരും ചർച്ച ചെയ്തു ഇന്ത്യ ജർമ്മനി പങ്കാളിത്തം കൂടുതൽ വൈവിധ്യ പൂർണമാക്കാനുള്ള നടപടികൾ ഈ രാഷ്ട്രത്തലവന്മാരും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

സൌദി അറേബ്യ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൌദുമായും ദക്ഷണികൊ റിയൻ ഭരണാധികാരി മൂണ്ഡ ജെ ഇന്നുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി ന്യൂസ്ഡസ്ക് ആകാശവാണി

ബ്രസീലിയൻ പ്രസിഡന്റ് ജെയ്ർ ബൊലോ സൊനാ രോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമാപോസാ എന്നിവരുമായാണ് ശ്രീ നരേന്ദ്രമോദി ഭീകരവാദം ഉയർത്തുന്നു ഭീഷണിയെക്കുറിച്ചും നേരിടേണ്ട മാർഗ്ഗങ്ങളെക്കുറിച്ചും ആശ്ശി്ച്ച്ചിനിമയം നടത്തിയത്

അടുത്തമാസം മൂന്ന് മുതൽ രാഷ്ട്രപതി ഭരണം നീട്ടണമെന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് അവതരിപ്പിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

സംസ്ഥാനത്ത് ജനാധിപത്യ ക്രമത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു

പാകിസ്ഥാൻ വെട്ടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് കണക്കിലെടുത്ത് വേണ്ട സുരക്ഷാ ക്രമീകരണം സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്

തുടർന്ന് നടന്ന ചർച്ചയിൽ കോൺഗ്രസ് അംഗം മനീഷ് തിവാരിയും ആർ

അംഗം എൻ

രാഷ്ട്രപതി ഭരണം നീട്ടുന്നതിനോട് യോജിക്കാനാകില്ലെന്നും സുരക്ഷ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി

കശ്മീരിൽ നിയന്ത്രണരേഖയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ജോലിയിലും സ്ഥാനക്കയറ്റവും ജനങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിനും സംവരണം വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ

ഓൺലൈൻ വഴിയുള്ള ഇത്തരം വെല്ലുവിളികളെ കൂട്ടായി നേരിടണമെന്നും ഇന്ത്യ ഐകൃരാഷ്ട്രസഭയിൽ ഇന്തൃയുടെ സ്ഥിരം ഡെപ്യൂട്ടി പ്രതിനിധി അംബാസഡർ കെ

ഓൺലൈൻ വഴി യഹൂദ വിരോധം വംശീയ അധിക്ഷേപം അസഹിഷ്ണുതയും തുടങ്ങിയവ വിദ്വേഷവും അതീവ ഗൌരവത്തോടെയാണ് ഇന്ത്യ വീക്ഷിക്കുന്നതെന്നും ശ്രീ നാഗരാജ് പറഞ്ഞു

ഇതുപോലെ ഗംഗ്ഗാന്ദി ശുചീകരണത്തിലും നേട്ടം കൈവരിക്കണമെന്നും ക്കേന്ദ്രമന്ത്രി പറഞ്ഞു

രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ജനങ്ങളുമായി ശ്രീ മോദി പരിപാടിയിലൂടെ ആശയങ്ങൾ പങ്കുവയ്ക്കും

മൂന്ന് ദിവസത്തെ പര്യടനത്തിന്റെ ഭാഗമായി എത്തിയ കപ്പലിലെ നാവികസേനാംഗങ്ങൾ ഈജിപ്തിലെ നാവികസേനയുമായി ചർച്ച നടത്തും

ജഗൻമോഹൻ റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി കെ

ന്യൂഡൽഹിയിൽ ഒരു മാധ്യമ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ അസോചാം പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഗോയങ്കയാണ് ആവശ്യമുന്നയിച്ചത്

ഗോയങ്ക പറഞ്ഞു

നിർമ്മാണ് അനുമതിക്കും നിർമ്മാണം പൂർത്തിയായിട്ടും തീർപ്പ് കാത്തുകിടക്കുന്നതുമായ അപേക്ഷകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് തദ്ദേശഭരണ സെക്രട്ടറിമാരുടെ യോഗം വിളിക്കുന്നത്

ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാരൃം മന്ത്രി അറിയിച്ചത്